മാലദ്വീപിൽ രാഷ്ട്രീയ സൂസ്ഥിരത ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്തൃയ്ക്ക് ദയനീയ പരാജയം

മാലദീപിൽ സുസ്ഥിരമായ ഗവൺമെന്റ് ഉണ്ടാവണമെന്ന് ശ്രീ

ജനാധിപത്യ സംവിധാനങ്ങളും നിയമവ്യവസ്ഥയും സ്വാതന്ത്ര്യവും സുതാര്യവുമായി നിലനിൽക്കണം

ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്

രാഷ്ട്രീയ പ്രതിസന്ധികളാണ് അടുത്തകാലത്ത് ആ രാജ്യത്ത് സംഭവിക്കുന്നത്

ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയും നേപ്പാളും അടുത്തബന്ധത്തിലാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാതലത്തിലും സുദൃഢമായ ബന്ധമാണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ

സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രീലങ്ക ഇന്ത്യയുടെ താൽപര്യം പരിഗണിക്കണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

എസ് ആർ ഒ ചെയർമാൻ ഡോ

ശിവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

എസ് എൽ

സംസ്ഥാനത്താകെ ദുരിതാശ്ചാസക്യാമ്പുകളിലായി ഒരു ലക്ഷത്തിലേറെപ്പേർ കഴിയുന്നു

കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരസഹായമായി നൂറു കോടി രൂപ നൽകുമെന്ന് ഇന്നലെ ദുരന്തമേഖലയിൽ സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു

പ്രളയം അവസാനിച്ച് അന്തരീക്ഷം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം പാസ്പോർട്ട് കേന്ദ്രത്തിൽ ബന്ധപ്പെടണമെന്ന് മന്ത്രി ടിറ്ററിൽ കുറിച്ചു

ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ചതിനാൽ കനത്ത കാറ്റിന് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് ഒഡീഷ തീര കർണാടക ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ പെയ്യും

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചതാണ് ഇക്കാര്യം

ഗുജറാത്തിൽ ഏഴും കേരളത്തിലും മഹാരാഷ്ട്രയിലും നാലു വീതവും നാഗാലാന്റിൽ ഒരു കമ്പനിയെയും ദുരന്ത നിവാരണ സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്

വിശദാംശങ്ങളുമായി സുരേഷ്

പ്രതികൂല കാലാവസ്ഥ നേരിടാൻ ഇന്ത്യൻ താരങ്ങൾക്കായില്ല

നാലു ബാറ്റ്കൂ്മാൻമാർ റൺ നേടാതെ പുറത്തായി

ജെ പി അധ്യക്ഷൻ അമിത്ഷാ ആയുഷ്മാൻ ഭാരത് സച്ഛ് ഭാരത് എന്നിവ എടുത്തുപറഞ്ഞ ശ്രീ

ഉത്തർപ്രദേശിലെ മീററ്റിൽ പാർട്ടിയുടെ സംസ്ഥാന നിർവ്വാഹക സമിതി യോഗത്തിന്റെ സമാപനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

സ്വാതന്ത്രൃ ദിനത്തിന് സമാനമായ തരത്തിലുള്ള പൂർണമായ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും

പി മുഖർജി റോഡ് ചാന്ദ്നി ചൌക്ക് തുടങ്ങിയ പ്രധാനവീഥികളിലെല്ലാം രണ്ടു ദിവസത്തേയ്ക്ക് ഗതാഗത നിയന്ത്രണമുണ്ടാകും നാളെ രാവിലെ മുതൽ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് പാർക്കിങ്ങും അനുവദിക്കില്ല

വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെനാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ഇന്നലെ ഹൃദയാഘാതം ഉണ്ടായത്തോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി

സൂര്യനിലെ കടുത്ത താപനില അതിജീവിച്ച് കൊറോണയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പാർക്കർ സൌരവാതകത്തിന്റെ ഉത്ഭവത്തെപ്പറ്റിയും വിവരം നൽകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ആകാശവാണി

നെടുമ്പാശ്ശേരിയിൽ നടന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് എം

എ മാരും എം പി മാരും അധിക കേന്ദ്രസഹായം ആവശ്യപ്പെട്ടത്

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയെ കണ്ടത് മാനദണ്ഡങ്ങൾ മാറ്റിവെച്ച് ഉദാരമായ സഹായം സംസ്ഥാനത്തിന് ലഭ്യമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു

പത്തനംതിട്ട ജില്ലയിലെ തിരുപ്പില്ലു താലൂക്കിലും കോഴഞ്ചേരി താലൂക്കിലെ ആറന്മുള മുല്ലപുഴശ്ശേരി പഞ്ചായത്തുകൾക്കും ഇന്ന് അവധി ഇടുക്കി ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി ആയിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു